ചെറിയ ക്ലാസുകളിൽ ഈ അധ്യയന വർഷം ഓൺലൈൻ ക്ലാസുകൾ തുടരും ത മുതിർന്ന കോൺഗ്രസ് നേതാവും രാജ്യസഭാംഗവുമായ അഹമ്മദ് പട്ടേൽ അന്തരിച്ചു ത നിവാർ ചുഴലിക്കാറ്റ് വൈകിട്ടോടെ തമിഴ്നാട് പുതുച്ചേരി തീരം കടക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മേഖലയിൽ അതീവ ജാഗ്രത

വാർത്തകൾ വിശദമായി സംസ്ഥാനത്തെ സ്കൂളുകളും കോളേജുകളും തുറക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു വിദഗ്ദ്ധരുമായി കൂടി ആലോചിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ചെറിയ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ അധ്യയന വർഷം മുഴുവൻ ഓൺലൈൻ ക്ലാസുകൾ തുടരും അതേസമയം കോവിഡ് സാഹചര്യം അനുകൂലമായാൽ പൊതുപരീക്ഷകൾ വഴി മൂല്യനിർണ്ണയം നടത്തുന്ന ഉയർന്ന ക്ലാസുകളിലെ വിദ്യാർഥികൾക്ക് വിദ്യാലയങ്ങളും കലാലയങ്ങളും തുറക്കുന്ന കാര്യം വിദഗ്ധരുമായി ആലോചിച്ച് തീരുമാനിക്കും ഉന്നതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അടുത്ത വർഷം ആദ്യത്തോടെ ക്ലാസുകൾ പുനഃരാരംഭിക്കുന്ന കാര്യം പരിഗണയിലുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി രുര മതിയായ കോവിഡ് നിയന്ത്രണങ്ങളും മുൻകരുതലുകളും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്കും വഴിയോര ഭക്ഷണശാലകൾക്കും എതിരെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ലോകത്ത് കോവിഡിന്റെ രണ്ടാം തരംഗം ഭക്ഷണശാലകളിൽ നിന്നും പബ്ബുകളിൽ നിന്നുമാണ് ഉണ്ടായതെന്ന പഠനങ്ങൾക്ക് ശ്രദ്ധ നൽകേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സാമൂഹിക അകലം പാലിക്കാതെ അടച്ചിട്ട മുറകളിൽ എ സി പ്രവർത്തിപ്പിച്ച് ആളുകൾ തിങ്ങിനിറഞ്ഞിരിക്കാൻ പാടില്ല വഴിയോര കടകൾക്ക് മുന്നിൽ ആളുകൾ കൂട്ടംകൂടി നിൽക്കുന്നതും രോഗവ്യാപനത്തിന് കാരണമാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രും സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനും ഗവൺമെന്റിനെ അട്ടിമറിക്കാനും അന്വേഷണ ഏജൻസികൾക്ക് നിയോഗിച്ചിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു

സംസ്ഥാന ഗവൺമെന്റ് പുറപ്പെടുവിച്ച പൊലീസ് ഭേദഗതി ഓർഡിനൻസ് പിൻവലിക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു

രും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കൂളുകൾ ഒഴികെ തൊഴിലധിഷ്ടിത പരിശീലന സ്ഥാപനങ്ങൾ ട്യൂഷൻ സെന്ററുകൾ കമ്പ്യൂട്ടർ സെന്ററുകൾ നൃത്ത വിദ്യാലയങ്ങൾ എന്നിവ തുറക്കാൻ അനുമതി നൽകി സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി

രും എറണാകുളം ജില്ലയിലെ സ്വകാര്യ ലാബുകളിലും ആശുപത്രികളിലും കോവിഡ് പരിശോധനാ നിരക്ക് പുനർ നിർണ്ണയിച്ചു

എസ് മാധവൻ ആകാശവാണിയോട് പറഞ്ഞു

മകൻ ഫൈസൽ പട്ടേലാണ് മരണവിവരം ട്വിറ്ററിലൂടെ അറിയിച്ചത്

ഗുജറാത്തിൽ നിന്ന് മൂന്ന് തവണ ലോക്സഭയിലേക്കും അഞ്ച് തവണ രാജ്യസഭയിലേക്കും വിജയിച്ചു

രുമ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട നിവാർ ചുഴലിക്കാറ്റ് വൈകിട്ടോടെ തമിഴ്നാട് പുതുച്ചേരി തീരം കടക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ആന്ധ്രാപ്രദേശിന്റെ തീര മേഖലയിലും അതീവ ജാഗ്രത പുലർത്തി വരികയാണ്

രംഭ നിവാർ ചുഴലിക്കാറ്റിന്റെ സാഹചര്യത്തിൽ തിരുവനന്തപുരം ഡിവിഷൻ ഇന്നത്തെ ആറ് ട്രെയിനുകൾ പൂർണ്ണമായി റദ്ദാക്കി കന്യാകുമാരിയിൽ നിന്നും കൊല്ലത്തുനിന്നും എഗ്മൂറിലേക്ക് പുറപ്പെടുന്നതും എത്തിച്ചേരുന്നതുമായ ട്രെയിനുകളുമാണ് റദ്ദാക്കിയത് രംഭ തെരഞ്ഞെടുപ്പ് വരണാധികാരികളുടെ രണ്ട് ദിവസത്തെ ദേശീയ സമ്മേളനം ഗുജറാത്തിലെ കെവാദിയയിൽ ഇന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്യും ലോക്സഭ സംഘടിപ്പിക്കുന്ന എൺപതാമത് സമ്മേളനമാണിത് ഊർജ്ജസ്വലമായ ജനാധിപത്യത്തിന് നിയമ നിർമ്മാണ നിർവ്വഹണ നീതിന്യായ സംവിധാനങ്ങളുടെ സൌഹാർദ്ദപരമായ ഏകോപനം എന്നതാണ് ഈ വർഷത്തെ സമ്മേളന പ്രമേയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു ലോക്സഭാ സ്പീക്കർ ഓം ബിർല തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുക്കും രുര ലക്നൌ സർവ്വകലാശാലയുടെ നൂറാമത് സ്ഥാപക ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിഡിയോ കോൺഫറൻസിംഗ് വഴി പങ്കെടുക്കും ശതവർഷ സ്മരണികാ നാണയം തപാൽ വകുപ്പ് പുറത്തിറക്കുന്ന സ്മരണികാ സ്റ്റാമ്പ് പ്രത്യേക തപാൽ കവർ എന്നിവ പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും

ത്രിതല പഞ്ചായത്തുകളിൽ ഉപയോഗിക്കുന്നത് പഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും ഓരോ യൂണിറ്റുകൾ വീതം മൂന്ന് ബാലറ്റ് യൂണിറ്റുകളും ഒരു കൺട്രോൾ യൂണിറ്റും അടങ്ങിയ മൾട്ടിപോസ്റ്റ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ വോട്ടെടുപ്പിന് സിംഗിൾ പോസ്റ്റ് വോട്ടിംഗ് യന്ത്രങ്ങൾ ഉപയോഗിക്കും ദ്ദേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വാഹനങ്ങളുടെ എണ്ണം നിശ്ചയിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചു ഗ്രാമപഞ്ചായത്തിൽ സ്ഥാനാർത്ഥിക്ക് ഒരു പ്രചാരണ വാഹനവും ബ്ലോക്ക് പഞ്ചായത്തിൽ പരമാവധി മൂന്ന് വാഹനങ്ങളും ജില്ലാ പഞ്ചായത്തിൽ നാല് വാഹനങ്ങളും ഉപയോഗിക്കാം മുനിസിപ്പാലിറ്റികളിൽ ഇത് രണ്ടും കോർപ്പറേഷനിൽ നാലും ആയിരിക്കും രുര വയനാട് ജില്ലയിലെ ഏക ഭാഷാ ന്യൂനപക്ഷ വാർഡായി മാറിയിരിക്കുകയാണ് തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് കൈതക്കൊല്ലി

ബാലറ്റ് പേപ്പറിലും ലേബലിലും മലയാളത്തിന് പുറമെ തമിഴിലും വിവരങ്ങൾ രേഖപ്പെടുത്തും രുര ചില തൊഴിലാളി സംഘടനകൾ നാളെ ആഹ്വാനം ചെയ്തിരിക്കുന്ന പണിമുടക്ക് പിൻവലിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ

ഗോവയിലെ വാസ്കോയിൽ ഇന്നലെ ജംഷഡ്പൂർ എഫ് സിയെ ഒന്നിനെതിരെ രണ്ട് ഗോളിനാണ് ചെന്നൈയിൻ തോൽപ്പിച്ചത് ഇന്ന് വൈകിട്ട് ഏഴരയ്ക്ക് എഫ് സി ഗോവ മുംബൈ സിറ്റിയെ നേരിടും